സേനാ വിന്യാസവും തയ്യാറെടുപ്പുകളും നിരീക്ഷിക്കാൻ കരസേനാ മേധാവി ജനറൽ വിപിൻ റാവത്ത് ഇന്നലെ ജമ്മു മേഖലയിൽ സന്ദർശനം നടത്തി

ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മൽസരങ്ങളുടെ ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഗുവാഹട്ടിയിൽ ഇന്ന് തുടക്കം

വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കാൻസർ ആശുപത്രി കണ്ണാശുപത്രി ദന്താശുപത്രി എന്നിവ ഇവയിൽ ഉൾപ്പെടും അഹമ്മദാബാദിലെ ജനങ്ങളുടെ ആരോഗൃ സംരക്ഷണ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഈ ആശുപത്രികൾ ഉപകരിക്കും പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഗോൾഡൺ കാർഡുകൾ വിതരണം ചെയ്യും ബാന്ദ്രാ ജാംനഗർ ഹുംസാഭാക് എക്സ്പ്രസ് ട്രെയിൻ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും രാജ്കോട്ട് കനാലസ് റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

നരേന്ദ്രമോദി നിർവ്വഹിക്കും സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ ഗാന്ധിനഗറിലെ അന്നപൂർണ്ണ ധാം ട്രസ്റ്റിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും ഗാന്ധിനഗറിൽ ശിക്ഷൺ വിദ്യാർത്ഥിഭവൻ എന്നിവയുടെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുന്ന പ്രധാനമന്ത്രി പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും

ഭീകരപ്രവർത്തകരേയും നക്സലുകളേയും നേരിടാൻ ഉപയുക്തമായ ഒന്നാണ് എ

ഇതിന്റെ നിർമ്മാണ ഫാക്ടറി യുവജനങ്ങൾക്ക് തൊഴിൽ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു

എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആധുനിക ആയുധങ്ങൾ സേനയ്ക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു പുതിയതരം വിത്തിനങ്ങൾ വളം കീടനാശിനി തുടങ്ങിയവ കർഷകർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ലഭ്യമാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ധനമന്ത്രി അരുൺ ജയ്റ്റിലി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു

മേഖലകളിലെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് റൈസിങ് സ്റ്റാർ കോർപ്പ്സ് ജനറൽ ഓഫീസർ കമാൻഡിങ് ലഫ് ജനറൽ ജെ

നയിൻ കരസേനാ മേധാവിക്ക് വിശദീകരണം നൽകി സേനയുടെകാര്യക്ഷമതയിൽ മതിപ്പ് പ്രകടിപ്പിച്ച കരസേനാ തലവൻ ശത്രുപക്ഷത്തെ ഏതു നീക്കവും ചെറുക്കാൻ സേന സുസജ്ജമാണെന്ന് അറിയിച്ചു

മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സന്ദർശന സംഘം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തും നിയമസഭ പിരിച്ചുവിട്ടശേഷം ആറ് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കെ ജമ്മുകാശ്മീരിൽ ഈ വർഷം മെയ്മാസത്തിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്

കഴിഞ്ഞവർഷ്ടം സ്ഥിസ്ംബർ മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ് നീലവിലുള്ളത്

ഡി എ ഭരണകാലത്ത് ്രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ച തുകയിൽ വർധനയുണ്ടെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ

പാട്ടീൽ സർവ്വകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ആകാശവാണിയുടെ എഫ്

ചർച്ചയിൽ പങ്കെടുക്കുന്നവരുമായി ശ്രോതാക്കൾക്കും സംവദിക്കാം

അറുപതു ലക്ഷംപേർ മഹാസ്നാനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡി ഐ

ആലുവ മണപ്പുറത്തേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവല്ലം തിരുനാവായ തിരുനെല്ലി ശംഖുമുഖം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലും പതിനായിരങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തും

പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്ടർ സർവ്വീസുകൾ നിർത്തിവച്ചു

ഇരു രാജ്യങ്ങളുടെയും കരസേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയാണ് സംപൃതി എന്ന പേരിലുള്ള സൈനികാഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തുടർന്നു പോരുന്ന പ്രതിരോധ നവീകരണം മെച്ചപ്പെടുത്തുകയാണ് പ്രകടനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു

അഭ്യാസ പ്രകടനങ്ങൾ രണ്ടാഴ്ച നീണ്ടുനിൽക്കും

ഇന്നലെ പാർലമെന്റ് സ്പീക്കർ ഹമ്മൌദ സബാഹ് അമ്മാനിലെത്തി

ഹർമൻ പ്രീത് കൌർ കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലായതിനാൽ സ്മൃതി മന്ദാനയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച മിതാലി രാജും ടീമിലുണ്ട് മുംബൈ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്കായിരുന്നു വിജയം

പാലൂക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് മേഖലയിൽ ചില ഇടങ്ങളിലെങ്കിലും ശരാശരിയിൽനിന്നും എട്ട് ഡിഗ്രിയിലധികം ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്

പരീക്ഷാക്കാലമായതിനാൽ സ് കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകശ്രദ്ധ പുലർത്തുക പുറമേ ദുരന്തനിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു

താലിബാൻ സഹസ്ഥാപകൻ മുല്ല അബ്ദുൾ ഘാനി ബരാദറാണ് താലിബാൻ വിഭാഗത്തിന് ചർച്ചയിൽ നേതൃത്വം നൽകുന്നത്